ഡൽഹിയിൽ കർഷ്ക പ്രക്ഷോഭത്തിനിടെ ഇന്നലെ ഉണ്ടായ ന് അക്രമ സംഭവങ്ങളിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു

പരിപാടിക്ക് ഇന്ന് തുടക്കം

ചെന്നൈയിൽ സ്മാരകം തുറന്നു

മാർച്ച് എട്ടിന് ആരംഭിക്കുന്ന രണ്ടാം ഭാഗം ഏപ്രിൽ എട്ടിന് അവസാനിക്കും

വിശദാംശങ്ങളിലേക്ക്

റിപ്പബ്ധിക് ദിനാഘോഷങ്ങളുടെ സാഹചര്യത്തിൽ ചില സംസ്ഥാനങ്ങളിൽ പരിമിതമായ തോതിലായിരുന്നു ഇന്നലെ പ്രതിരോധ കുത്തിവയ്പ് നൽകിയത്

ആഗോളതലത്തിൽ കൊറോണയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കാനുമുള്ള അമേരിക്കയുടെ തീരുമാനം സന്തോഷകരമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയും ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനുമായ ഡോ

ലോകാരോഗ്യ സംഘടനയ്ക്ക് പുതിയ കാഴ്ചപ്പാടുകളോടെ പൂർണ്ണസ്ജ്ജമായി അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ ആരോഗ്യസ്ത്രക്ഷ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പ്രറഞ്ഞു

വടകരയിലെ വയോജന പരിപാലന കേന്ദ്രത്തിൽ ടെലി മെഡിസിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വാക്സിൻ പ്രധാനമാണെന്നും കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച വാക്സിൻ വിതരണം പുരോഗമിക്കുകയാണെന്നും ആരോഗൃമന്ത്രി പറഞ്ഞു

കെ യിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞു സർക്കാരിന്റെ നടപടികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായും സാധ്യമായതെല്ലാം ചെയ്തുവെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അറിയിച്ചു

അമേരിക്ക ബ്രസീൽ ഇന്ത്യ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ യു

മെഡിക്കൽ കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ ജനറൽ ആശുപത്രികളിലും പ്രാദേശിക ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും

ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ദേശീയ ആരോഗ്യ മിഷന്റെ സഹകരണത്തോടെയാണ് സംസ്ഥാനത്ത് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്

നിയമ ലംഘനത്തിനും കലാപത്തിനും പൊതുസ്വത്ത് നശിപ്പിച്ചതിനും മാരകായുധങ്ങൾ ഉപയോഗിച്ച് പൊലീസിനെ ആക്രമിച്ചതിനുമാണ് കേസ്

ചുവപ്പ് കോട്ട മുക്കർബ ചൌക്ക് ഗാസിപൂർ ഐടിഒ സീമാപുരി നൻഗ്ലോയ് ടീ പോയിൻറ് തിക്രി അതിർത്തി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും അക്രമ സംഭവങ്ങൾ ഉണ്ടായത്

ആൾക്കൂട്ടത്തിൽ ചിലർ ചുവപ്പ് കോട്ടയിൽ പ്രവേശിച്ച് സംഘടനയുടെ കൊടി കെട്ടിയതായും പിന്നീട് ഇവരെ ഒഴിപ്പിച്ചതായും പൊലീസ് അറിയിച്ചു പ്രക്ഷോഭം നടത്തുന്ന കർഷകർ അക്രമങ്ങളിൽ ഏർപ്പെടരുതെന്നും സമാധാനം പാലിക്കണമെന്നും ഡൽഹി പൊലീസ് കമ്മീഷണർ എസ്

ജുമാ മസ്ജിദ് സ്റ്റേഷനും അടച്ചിരിക്കുകയാണ് ഡൽഹി മെട്രോയുടെ മറ്റെല്ലാ സ്റ്റേഷനുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതായി അധികൃതർ അറിയിച്ചു

ജയലളിത സ്മാരകത്തിന്റെ ഉദ്ഘാടനം തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസാമി ചെന്നൈയിൽ നിർവ്വഹിച്ചു

ജി ആറിന്റെയും പ്രതിമകളും സ്മാരകത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് മൂപ്പത് മാസത്തെ റെക്കോഡ് സമയത്തിനിടെയാണ് സ്മാരകത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്

ലഫ്റ്റനന്റ് ജനറൽ ശന്തനു ദയാലിൽ നിന്നാണ് അദ്ദേഹം ചുമതലയേറ്റെടുത്തത്

കോവിഡ് മഹാമാരിക്കിടയിലും ഈ വർഷം രണ്ടക്ക വളർച്ച രേഖപ്പെടുത്തിയ ലോകത്തെ പ്രധാന സമ്പദ്വ്യവ്സ്ഥയാണ് ഇന്ത്യയുടേത് ഏറ്റവും പുതിയ കണക്കുകളിലൂടെ ല്ലോൿത്തെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന് സമ്പദ്വ്യവസ്ഥ എന്ന ബഹുമതി ഇന്ത്യ വീണ്ടെടുത്തായും ഐഎ്എഫ് അറിയിച്ചു കോവിഡിനെ നേരിടാൻ വളരെ നിർണ്ണായകമായ നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിവ പറഞ്ഞു

ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയാണ് താങ്ങുവിലയിനത്തിൽ അനുവദിച്ചത്

റെയിൽ പാതയുടെ നിർമ്മാണ പുരോഗതിയിൽ ശ്രീ പീയുഷ് ഗോയൽ സംതൃപ്തി പ്രകടിപ്പിച്ചു

കോവിഡ് പ്രതിസന്ധിയെ കൈകാരൃം ചെയ്തതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെ തുടർന്നാണ് രാജി

അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമോ എന്ന കാരൃത്തിൽ അവൃക്തത തുടരുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് പ്രധാനമന്ത്രിക്ക് സെനറ്റിൽ ഭൂരിപക്ഷം നഷ്ടമായത്

കോവിഡ് ഭീകരവാദം പ്രാദേശിക കലഹങ്ങൾ എന്നിവ നിലനിൽക്കുന്ന സാഹചരൃത്തിലാണ് പാകിസ്ഥാനിലേക്കുള്ള യാത്രകളെക്കുറിച്ച് പുനപരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്

എൽ ഫുട്ബോളിൽ ഇന്ന് കേരളാ ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ്

രാത്രി ഏഴരയ്ക്ക് ഗോവയിലാണ് മത്സരം ഇന്നലെ എ

കെ മോഹൻ ബഗാനെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി

സ്വർണ്ണവില കുറഞ്ഞു